വിപുലമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ

നാലാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു

ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ കക്ഷികൾ

ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും

നെതർലന്റ്സ് പ്രധാനമന്ത്രി മാർക്ക് റട്ടിലുമായി കഴിഞ്ഞ ദിവസം നടത്തിയ വെർച്ചൽ ഉച്ചകോടിയ്ക്ക് ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി ഇക്കാര്യം വൃക്തമാക്കിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ശക്തമായ നയതന്ത്രബന്ധത്തിന്റെ കാതൽ ജനാധിപത്യ മൂല്യങ്ങളിലുള്ള വിശ്വാസവും നിയമവാഴ്ചയുമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോവിഡാനന്തര ലോകത്തിൽ കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കാൻ രാജൃങ്ങളുടെ പരസ്പര സഹകരണത്തിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതിവിവരങ്ങൾ അവലോകനം ചെയ്യാനായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ യോഗത്തിലായിരുന്നു ടീക്കാ ഉത്സവ് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് വിശദാംശങ്ങളുമായി അമൃത വൈശാഖ്

സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രിദ്ദേൾങ്ങളിലും ടീക്കാ ഉത്സവ് സമുചിതമായി സംഘടിപ്പിക്കാനു്ള്ള തയാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണ് ഉത്തർപ്രദേശിൽ ടീക്കാ ഉത്സവിനായി ആറായിരം വാക്സിനേഷൻ ക്രേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് നാളെ ആരംഭിക്കുന്ന ടീക്ക ഉത്സ്പിൽ എല്ലാ ജനങ്ങളും പങ്കുചേരണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭ്യർത്ഥിച്ചു

ബിഹാറിൽ ഇതുവരെ വാക്സിൻ ക്ഷാമമില്ലെന്നും ശ്രീ നിതീഷ് കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നഗരങ്ങളിലെ വിവിധ ആശുപത്രികളിൽ കോവിഡ് ചികിത്സാ സൌകര്യങ്ങൾ വിപുലപ്പെടുത്തിയതായും കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്രമന്ത്രിയെ അറിയിച്ചു

പദ്ധതിയ്ക്കാപ്പ്ശ്ച്ചമായ വാക്സിൻ ഡോസുകൾ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവീശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ

അതുകൊണ്ടു തന്നെ ഇവരെ സംരക്ഷിക്കാൻ വാക്സിന്ന്ഷൻ ദ്രുതഗതിയിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു

ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം മൂന്നേകാൽ ലക്ഷത്തോളമായി

അജ്മീർ കോട്ട ജയ്പൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് കർഫ്യു കടകമ്പോളങ്ങൾ രാത്രി ഏഴ് മണിയ്ക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല

എ ആയിരുന്നു

സ്ഥകാരൃ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു

വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണം നടത്തുന്നുണ്ട് ഇന്ന് വീണ്ടും ബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിൽഗുരിയിലെ കവഖാലിയിലും കൃഷ്ണനഗറിലും പൊതു സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും

മോദിയുടെ നാലാം ബംഗാൾ സന്ദർശനമാണിത്

എട്ട് ഘട്ടമായാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്

നിർദ്ദേശം ലംഘിക്കുന്ന പാർട്ടികളുടെ യോഗങ്ങളും റാലികളും നിരോധിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു

ഭരണ കക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ബി ജെ

കോൺഗ്രസും ഇടത് പാർട്ടികളും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും ചേർന്ന് സംയുക്ത മോർച്ചയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്

വെർച്ചൽ ക്യൂ ബുക്കിംഗ് വഴി എത്തുന്നവർക്കു മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം

മണ്ഡല മകരവിളക്ക് തീർഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തുന്നത് വിഷു ഉത്സവത്തോടനുബന്ധിച്ചാണ്

ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം പ്രതിപക്ഷ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു

ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തതായി റിപ്പോർട്ട് കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ സ്പീക്കർ ഹാജരാകത്തിനെ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കറെ തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്തതെന്നാണ് സൂചന

എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ഡൽഹിയുടെ കൃാപ്റ്റനായതിനുശേഷം ഋഷഭ് പന്തിന്റെ ആദ്യ മത്സരമാണിത് കഴിഞ്ഞ് സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ക്ഷ്യ്ക്ക് ധോണിയുടെ നേതൃത്വത്തിൽ ചെന്നൈ ഇത്തവണ്ണൂട്ടു ശ്ക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്